ഓറഞ്ച് അലർട്ട് ഇന്നുതന്നെ ഉണ്ടായേക്കും അണക്കെട്ട് തുറക്കേണ്ട സാഹചര്യം മുൻനിർത്തി സുരക്ഷാ ക്രമീകരണങ്ങൾ അവസാനഘട്ടത്തിൽ പെരുമ്പാവൂരിൽ കോളേജ് വിദ്യാർത്ഥിനിയെ ഇതര സംസ്ഥാന തൊഴിലാളി കൊലപ്പെടുത്തി അക്രമി പൊലീസ് പിടിയിൽ

സി ഉത്ത ര മേ ഖല കാർ്യാലയം കോഴിക്കോട്ട് മന്ത്രി എ കെ ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു

മൺസൂൺകാല ട്രോളിങ് നിരോധനം നാളെ അവസാനിക്കും

അണക്കെട്ട് തുറക്കേണ്ടി വരുമെന്ന് സൂചിപ്പിക്കുന്ന രണ്ടാമത്തെ മുന്നറിയിപ്പാണിത് ഇപ്പോഴത്തെ രീതിയിൽ നീരൊഴുക്ക് തുടർന്നാൽ ഉച്ചയ്ക്ക്ശേഷം തന്നെ ജാഗ്രതാനിർദേശം പുറപ്പെ ടുവിക്കേണ്ടി വരും അണക്കെട്ട് തുറക്കേണ്ട സാഹചര്യം കണക്കിലെടുത്ത് സർവേനടപടികളും തീരമേഖലയിലെ സുരക്ഷാക്രമീകരണങ്ങളും ഒരുക്കുന്ന പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് ജില്ലയിൽ മഴയുടെ ശക്തി കുറഞ്ഞെങ്കിലും അണക്കെട്ടിലേക്ക് നീരൊഴുക്ക് ഇപ്പോഴും ശക്തമാണ്

കാലവർഷക്കാലത്ത് അണക്കെട്ട് ജലസമൃദ്ധമാകുന്നത് ആദ്യമായാണ്

ഇടുക്കി കുളമാവ് ചെറുതോണി അണക്കെട്ടുകൾ ഉൾപ്പെട്ട വിശാലമായ ഇടുക്കി പദ്ധതിയിൽ ചെറുതോണി ഡാമിൽ മാത്രമാണ് ഷട്ടറുകൾ ഉള്ളത് അണക്കെട്ട് തുറന്നാൽ പെരിയാർ തീരമേഖലയെ അത് എങ്ങനെ ബാധിക്കുമെന്ന വിവരശേഖരണം അവസാന ഘട്ടത്തിലാണ് ഇടുക്കി ഡാം തുറന്നുവിട്ടാൽ ഏറ്റവും കൂടുതൽ പ്രശ്ന സാധ്യത കണക്കാക്കുന്ന ആലുവ താലൂക്ക് പരിധിയിൽ ക്രമീകര ണങ്ങൾ ആരംഭിച്ചു

ഇതിനാവശ്യമായ കെട്ടി ടങ്ങൾ ജില്ലാഭരണകൂടം കണ്ടെത്തിയിട്ടുണ്ട്

ഡാം തുറക്കുന്നതിനു മുന്നോടിയായി മികച്ച സുരക്ഷാക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും ജനങ്ങൾ ആശങ്കപ്പെ ടേണ്ടതില്ലെന്നും ചെന്നിത്തല പറഞ്ഞു കാട്ടാനശല്യം രൂക്ഷമായ ശാന്തൻപാറ മേഖലയിലും അദ്ദേഹം സന്ദർശനം നടത്തും കാട്ടാനശല്ല്യം നേരിടുന്ന പ്രദേശങ്ങളിലെ കർഷകരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ ഗവ അടിയന്തിര നടപടി എടുക്കണമെന്ന് പ്രതിപക്ഷനേതാവ് ആവശ്യപ്പെട്ടു പെരുമ്പാവൂർ എടത്തിക്കാട് ഇതര സംസ്ഥാന തൊഴിലാളി കോളേജ് വിദ്യാർത്ഥിനിയെ കഴുത്തറുത്തുകൊന്നു മാറമ്പള്ളി എം ഇ എസ് കോളേജിലെ ബിരുദ വിദ്യാർത്ഥിനി നിമിഷ തമ്പി യാണ് കൊല്ലപ്പെട്ടത്

വാഴക്കുളത്തിന് സമീപം പെൺകുട്ടിയുടെ വീട്ടിലെത്തിയ ഇതര സംസ്ഥാന തൊഴിലാളി നിമിഷയെ ആക്രമിക്കുകയായിരുന്നു കഴുത്തിന് കുത്തേറ്റ പെൺകുട്ടി ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുമ്പേ മരണമട ഞ്ഞു മൃതദേഹം പെരുമ്പാവൂർ താലൂക്കാശുപത്രിയിൽ സൂക്ഷി ച്ചിരിക്കുകയാണ് കെ എസ് ആർ ടി സി ഉത്തരമേഖലാ കാര്യാലയം കോഴി ക്കോട്ട് മന്ത്രി എ

ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു മാവൂർ റോഡിൽ കെ

ടി സി ബസ് ടെർമിനലിന്റെ മൂന്നാം നിലയിലാണ് ഓഫീസ് കോർപറേഷനെ മൂന്ന് സ്വതന്ത്ര മേഖലകളാക്കിയതോടെ മലബാർ മേഖലയിലെ മുഴുവൻ സർവ്വീ സുകളുടെയും ഏകോപനവും ഭരണനിർവ്വഹണവും ഇനി കോഴി ക്കോട് കേന്ദ്രീകരിച്ചായിരിക്കും കോഴിക്കോടിനു പുറമെ വയനാ ട് കണ്ണൂർ കാസർകോട് മലപ്പുറം പാലക്കാട് ജില്ലകളാണ് ഉത്ത രമേഖലയുടെ പരിധിയിൽ വരുന്നത് ശബരിമല സ്ത്രീപ്രവേശന കാര്യത്തിൽ ഗവൺമെന്റിന്റെ നില പാടിൽ മാറ്റമില്ലെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ വ്യക്തമാ ക്കി ദേവസ്വം ബോർഡ് ഗവൺമെന്റ് സ്ഥാപനമല്ലെന്നും അവർക്ക് സ്വന്തമായ അഭിപ്രായം പറയാമെന്നും അദ്ദേഹം അറിയിച്ചു വിഷ യത്തിൽ സുപ്രീംകോടതി തീരുമാനം പ്രഖ്യാപിക്കട്ടെയെന്നും മന്ത്രി പറഞ്ഞു കേരള ബാങ്ക് ചിങ്ങം ഒന്നിന് തന്നെ ആരംഭിക്കുമെന്നും കട കംപള്ളി പറഞ്ഞു

ബി ഐ യുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുമെന്നും മന്ത്രി പറഞ്ഞു കോഴിക്കോട് ഞെളിയൻ പറമ്പിൽ മാലിന്യത്തിൽ നിന്ന് വൈദ്യുതി ഉത്പാദിപ്പിക്കുന്ന പദ്ധതിയെകുറിച്ച് അൽപ്പസമയത്തി നകം തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചർച്ച നടത്തും

കേരള വൃവസായ വികസന കോർപറേഷനാണ് ടെണ്ടർ വിളിക്കാനും കരാർ ഉറപ്പിക്കാനും ചുമതല ചെന്നൈയിൽ ചികിത്സയിൽ കഴിയുന്ന തമിഴ്നാട് മുൻ മുഖ്യ മന്ത്രി എം കരുണാനിധിയുടെ ആരോഗ്യനിലയിൽ നേരിയ പുരോ ഗതിയുണ്ടെന്ന് കാവേരി ആശുപത്രിയുടെ മെഡിക്കൽ ബുള്ളറ്റിൻ അറിയിച്ചു എന്നാൽ ഇപ്പോഴും അദ്ദേഹം അതീവ ഗുരുതരാവസ്ഥ യിൽ തന്നെയാണെന്നും രാത്രിവൈകി പുറപ്പെടുവിച്ച ബുള്ളറ്റിൻ പറയുന്നു തമിഴ്നാട് മുഖ്യമന്ത്രി എടപ്പാടി പളനിസ്വാമി ഉപമുഖ്യമന്ത്രി ഒ പനീർശെൽവം എന്നിവർ ഡി

കെ നേതാവ് എം കെ സ്റ്റാലി നൊപ്പം ആശുപത്രിയിലെത്തി കരുണാനിധിയെ കണ്ടു ലൈംഗികാ രോ പണ ക്കേ സിൽ ബിഷപ്പ് മുളയ്ക്കലിനെ ചോദ്യം ചെയ്യാൻ ആഭ്യന്തരവകുപ്പിന്റെ അനുമതി ലഭിച്ചതിനെ തുടർന്ന് അന്വേഷണസംഘം മറ്റന്നാൾ ജലന്ധറി ലേക്ക് പോകും ഒരു മാസം നീണ്ട അന്വേഷണത്തിന് ശേഷ മാണ് പരാതിയിൽ ബിഷപ്പിനെ ചോദ്യം ചെയ്യാൻ പൊലീസ് തീരു മാനിച്ചത്

ശർമ്മയുടെ ആധാർ വിവരങ്ങൾ ചോർന്നിട്ടില്ലെന്ന് യു ഐ

ഗൂഗിളിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ പരസ്യ പ്പെടുത്തിയാണ് ആധാർ വിവരങ്ങൾ ചോർന്ന് കിട്ടിയതെന്ന പേരിൽ പ്രചരിപ്പിച്ചതെന്ന് യു ഐ

എ ഐ വ്യക്തമാക്കി

ഫൈന ലിൽ ജപ്പാൻ താരത്തെ തോല്പിച്ചാണ് മുൻ ദേശീയ ചാമ്പ്യനായ സൌരഭ് റഷ്യൻ ഓപ്പൺ കിരീടം സ്വന്തമാക്കിയത് കോടതി നടപടികൾ ലൈവ് ആയി സംപ്രേഷണം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് മുതിർന്ന അഭിഭാഷക സമർപ്പിച്ച ഹർജി സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും

മൂന്നാമതൊ രാളെ ആശ്രയിക്കാതെ കോടതികളിൽ നടക്കുന്നത് ജനങ്ങൾക്ക് അറിയാൻ അവസരം ഒരുക്കണം എന്ന് ആവശ്യപ്പെട്ടാണ് ഹർജി

മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും തിരുനാവായയിലെ മാമാങ്ക സ്മാരകങ്ങൾ ഉൾപ്പെട്ട കൊടക്ക ലിലെ നിലപാട് തറയിലേക്ക് വഴിയൊരുക്കുന്നതിനുവേണ്ടി തിരു വനന്തപുരത്ത് പ്രത്യേക യോഗം വിളിക്കുമെന്ന് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു നിലപാട്തറ സന്ദർശിച്ച ശേഷം മാധ്യമങ്ങ ളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

ഇതിനായി സ്ഥലം ഏറ്റെടുക്കാൻ പുരാവസ്തു വകുപ്പ് തയ്യാ റാണെന്നും മന്ത്രി അറിയിച്ചു സ്ത്രീ സുരക്ഷയ്ക്ക് സമൂഹമാധ്യമങ്ങളിലൂടെ കടുത്ത ഭീഷണി നേരിടുന്ന കാലഘട്ടമാണിതെന്ന് വനിതാകമ്മീഷൻ ചെയർപേഴ്സൺഎം സി ജോസഫൈൻ കണ്ണൂർ പയ്യന്നൂരിൽ പറഞ്ഞു സമൂഹ മാധ്യമങ്ങളിലൂടെ ചിലർ അധോലോക പ്രവർത്ത നങ്ങളാണ് നടത്തുന്നതെന്ന് അവർ പറഞ്ഞു കോറോം ഗവൺമെന്റ് ഹയർസെക്കണ്ടറി സ്കൂളിൽ വനിതാ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ജോസഫൈൻ സംസ്ഥാനത്ത് മൺസൂൺകാല ട്രോളിംഗ് നിരോധനം നാളെ അവസാനിക്കും

നാളെ അർദ്ധരാത്രി നിരോധനം കഴിയുന്നതോടെ മീൻപി ടുത്ത ബോട്ടുകൾ കടലിൽ ഇറങ്ങും കനത്ത മഴ ലഭിച്ചതോടെ ചാകര പ്രതീക്ഷയിലാണ് മത്സ്യത്തൊഴിലാളികൾ കാസർകോട് പൊസളിഗെ മാലങ്കി കോളനികളിൽ പട്ടിക വിഭാഗക്കാരുടേതുൾപ്പെടെ ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം ഉറ പ്പുവരുത്തണമെന്ന് പി കരുണാകരൻ എം പി വാർത്താസമ്മേള നത്തിൽ ആവശ്യപ്പെട്ടു

കരുണാകരൻ പറഞ്ഞു ചലച്ചിത്രസംവിധായകനും പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് മുൻ ഡയറക്ടറുമായ ജോൺ സി ശങ്കരമംഗലം അന്തരിച്ചു

മികച്ച ഫീച്ചറിന് നർഗീസ് ദത്ത് അവാർഡും പരീ ക്ഷണ സിനിമയ്ക്ക് ദേശീയ അവാർഡും ലഭിച്ചിട്ടുണ്ട് മലബാർ സിമന്റ് സ് അഴിമതികേസിൽ മുന്നുപേരെ ഒഴിവാ ക്കിയ ഗവൺമെന്റ് തീരുമാനം ചോദ്യം ചെയ്ത് സമർപ്പിച്ച ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും

ഉപ ജീ വ ന ത്തിന് മീൻ വിൽക്കാനിറങ്ങിയ ഹനാനെതിരായ സൈബർ ആക്രമണത്തിൽ ഒരാൾ കൂടി അറ സ്റ്റിലായി കൊല്ലം സ്വദേശി സിയാദിനെയാണ് പാലാരിവട്ടം പൊലീസ് അറസ്റ്റ് ചെയ്തത് ഇയാളെ ഇന്ന് കോടതിയിൽ ഹാജ രാക്കും

ചെമ്പലംകോട് സ്വദേശികളായ രാജുകോശി മേരിക്കുട്ടി എന്നിവരെയാണ് പുലർച്ചെ മരിച്ചനില യിൽ കണ്ടെത്തിയത് മാരക മയ ക്കു മരു ന്നു മായി മുംബൈ സ്വദേശി വയ നാട്ടിൽ പിടിയിലായി

എ മയക്കുമരുന്നുമായി മുത്തങ്ങ ചെക്പോസ്റ്റിൽ എക്സൈസ് സംഘമാണ് ഇയാളെ പിടികൂടിയത്

ഇതിന്റെ ഭാഗമായി പൊതുജനങ്ങ ളെയും ഉദ്യോഗസ്ഥരെയും ജനപ്രതിനിധികളെയും ഉൾപ്പെടുത്തി അഴിമതി രഹിത ജന സൌഹൃദ സദ്ഭരണ ആശയങ്ങൾക്ക് പ്രാധാന്യം നൽകി ബോധവൽക്കരണ ക്ലാസുകളും പൊതുപരി പാടികളും സംഘടിപ്പിക്കും സേവനം തേടിയെത്തുന്നവർക്ക് ജീവനക്കാരുടെ ഭാഗത്തു നിന്ന് നല്ല പെരുമാറ്റം ഉറപ്പാക്കാനും അഴിമതിക്കും ക്രമക്കേടു കൾക്കുമെതിരെ കർശന നടപടിയെടുക്കാനും ഊന്നൽ നൽകി യാണ് വാരാചരണം